വെങ്കയ്യ നായിഡു ഇന്ന് കോട്ടയത്തും കൊല്ലത്തും പരിപാടികളിൽ പങ്കെടുക്കും

സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു കൂടു തൽ വോട്ടർമാർ മലപ്പുറത്ത് എറണാകുളം സംസ്ഥാന യൂത്ത് അത്ലറ്റിക്സ് ചാമ്പ്യൻമാർ പ്രൊ വോളിബോൾ ലീഗിന് ഇന്ന് കൊച്ചിയിൽ തുടക്കം ൾ ൽ ൾ കാസർകോട് ജില്ലയിലെ എൻഡോസൾഫാൻ ബാധിതരെ മാനദ ണ്ഡപ്രകാരം പുനപരിശോധിച്ച് പട്ടിക പുതുക്കുമെന്ന് മന്ത്രിമാരായ കെ

ശൈലജയും ഇ ചന്ദ്രശേഖരനും അറിയിച്ചു

മുമ്പ് നടത്തിയ കൃാമ്പിൽ ഹർത്താലിനെ തുടർന്ന് പങ്കെടുക്കാൻ കഴി യാതിരുന്നവർക്കായി പ്രത്യേക ക്യാമ്പ് നടത്തും സെക്രട്ടേറിയറ്റിന് മുന്നിൽ എൻഡോസൾഫാൻ പീഡിത ജനകീയ മുന്നണിയുമായി നട ത്തിയ ചർച്ചയിലാണ് മന്ത്രിമാർ ഇക്കാര്യം അറിയിച്ചത് ഈ സാഹച രൃത്തിൽ സമരം പിൻവലിക്കണമെന്ന് മന്ത്രിമാർ ആവശ്യപ്പെട്ടു രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് കേരളത്തിലെത്തിയ ഉപരാ ഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഇന്ന് രാവിലെ കോട്ടയത്ത് അഖില കേരള ബാലജനസഖ്യം നവതി ആഘോഷം ഉദ്ഘാടനം ചെയ്യും മാമൻ മാപ്പിള ഹാളിലെ ചടങ്ങിൽ ഗവർണർ ജസ്റ്റിസ് പി സദാശിവം അധ്യക്ഷനായിരിക്കും കൊല്ലം പ്രസ്ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഉപരാഷ്ട്രപതി ഇന്ന് ഉച്ചകഴിഞ്ഞ് ഉദ്ഘാടനം ചെയ്യും ആശ്രാമം യൂനൂസ് കൺവെൻഷൻ സെന്ററിൽ സുവർണ ജൂബിലി ആഘോഷ ശിലാഫലകം ഉപരാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും ജൂബിലി പ്രത്യേക തപാൽ സ്റ്റാമ്പും അദ്ദേഹം പ്രകാശനം ചെയ്യും ചടങ്ങിൽ ഗവർണർ പി സദാശിവം അധ്യക്ഷനായിരിക്കും

കേരളത്തിന് എയിംസ് വേണമെന്ന ആവശൃത്തിലും കഞ്ചിക്കോട് കോച്ച് ഫാക്ടറി യാഥാർത്ഥ്യമാക്കണ മെന്ന ആവശൃത്തിലും ബജറ്റ് നിശബ്ദത പാലിക്കുകയാണ് വിലക്ക യറ്റം തടയാനോ പെട്രോളിയം വില നിയന്ത്രിക്കാനോ ബജറ്റിൽ നിർദേ ശമില്ലെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സംസ്ഥാന ശാസ്ത്ര കോൺഗ്രസ് കൊല്ലം ഫാത്തിമ മാതാ നാഷ ണൽ കോളജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നുച്ചക്ക് ഉദ്ഘാ ടനം ചെയ്യും പൊതു സമൂഹത്തിന് കൂടി തൊഴിൽ നൈപുണ്യ പരിശീലനം ലക്ഷ്യമിടുന്ന അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് സംസ്ഥാനതല ഉദ്ഘാടനവും മുഖൃമന്ത്രി കൊല്ലം കൂളനടയിൽ നിർവഹിക്കും സംസ്ഥാനത്ത് പ്രവർത്തന സജ്ജമാകുന്ന ഒൻപത് പാർക്കുകളിൽ ആദ്യത്തേതാണ് കുളനടയിലേത് പുനലൂർ ആർഡിഒ ഓഫീസും വൈകീട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും കോഴിക്കോട് ഇരട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് ഒരാളെ കൂടി ന്യൂഡൽഹിയിൽ ദേശീയ അന്യ്ഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു സൌദി അറേബ്യയിൽ നിന്ന് ഡൽഹി വിമാനത്താവളത്തി ലെത്തിയ തലശേരി സ്വദേശി പി

യൂസഫാണ് എൻഐഎയുടെ പിടിയിലായത്

അതേ തുടർന്ന് യൂസഫ് സൌദി അറേബൃയിലേക്ക് കടക്കുകയായിരുന്നു

യൂസഫിനെ കൊച്ചി എൻഐഎ പ്രത്യേക കോടതിയിൽ ഹാജരാക്കും സംസ്ഥാനത്തെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു

ഏറ്റവും കൂടുതൽ വനിതാ വോട്ടർമാരും യുവ വോട്ടർമാരും മലപ്പുറത്താണ് കൂടുതൽ പ്രവാസി വോട്ടർമാർ കോഴി ക്കോട് ജില്ലയിലാണ്

അതുവരെ സീറ്റ് ആവശ്യം പരസ്യമായി ആരും ഉന്നയിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം പറ ഞ്ഞു സൌഹാർദ്ദപരമായി സീറ്റ് വിഭജനം പൂർത്തിയാക്കാനാവുമെന്ന് അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു മുന്നണി നേതൃയോഗ തീരുമാന ങ്ങൾ വിശദീകരിക്കുകയായിരുന്നു ബെന്നി ബെഹ്നാൻ സിപിഐഎം സംസ്ഥാന സമിതി യോഗം ഇന്ന് തിരുവനന്തപു രത്ത് ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തയാറെടുപ്പുകൾ യോഗം ചർച്ച ചെയ്യും സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും യോഗം ചർച്ച ചെയ്തേക്കും മുസ്ലീം ലീഗ് ഉന്നതാധികാര സ്മിതി യോഗം ഇന്ന് രാവിലെ മല പ്പുറം പാണക്കാട് ചേരും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സീറ്റ് വേണമെന്ന ആവശ്യം യോഗം ചർച്ച ചെയ്തേക്കും മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പറ്റിയും യോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന സിമിയെ കേന്ദ്ര ഗവൺമെന്റ് അഞ്ച് വർഷത്തേക്ക് കൂടി നിരോ ധിച്ചു

വാർഷിക ബജറ്റും വോട്ട് ഓൺ അക്കൌണ്ടും അവതരിപ്പിക്കാൻ മാത്രമാണ് ഭര ണഘടനാ വ്യവസ്ഥയെന്ന് പരാതിയിൽ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പശ്ചിമ ബംഗാളിലെ ദുർഗാപൂർ സന്ദർശിക്കും

പുതുതായി നിർമ്മിച്ച ഒരു മൂന്നാം പാതയും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും

എറണാകുളത്തിന്റെ എ

സാന്ദ്രയാണ് മികച്ച വനിതാ അത്ലറ്റ് കൊല്ലത്ത് ദേശീയ ജൂനിയർ വനിതാ ഹോക്കി ചാമ്പൃൻഷിപ്പിലെ ഡിവിഷൻ ബി ഫൈനലിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഭോപ്പാലും പട്യാലയും ഏറ്റുമുട്ടും വൈകീട്ട് കേരളാ ഹോക്കി ബ്രാന്റ് അംബാസിഡർ സുരേഷ് ഗോപി സമ്മാന വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന പൊലീസ് മേധാവി ലോക്നാഥ് ബെഹ്റ ജേതാക്കൾക്ക് അവാർഡ് സമ്മാനിക്കും ദേശീയ പൊലീസ് ഫുട്ബോളിൽ ഇ ഗ്രൂപ്പിലെ അവസാന മത്സ രവും ജയിച്ച് കേരള പൊലീസ് ഗ്രൂപ്പ് ചാമ്പ്യൻമാരായി മഹാരാ ഷ്ട്രയെ ഒന്നിനെതിരെ രണ്ട് ഗോളിന് തോൽപ്പിച്ചാണ് കേരളം ഗ്രൂപ്പിൽ ഒന്നാമതായത് പ്രീക്വാർട്ടർ മത്സരങ്ങൾ നാളെ മലപ്പുറം ജില്ലയിലെ വിവിധ സ്റ്റേഡിയങ്ങളിൽ ആരംഭിക്കും

ആദ്യ മത്സരത്തിൽ ഇന്ന് കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് യൂ മുംബൈയെ നേരിടും രാത്രി ഏഴി നാണ് മത്സരം ട പാലക്കാട് മലമ്പുഴ റിങ്ങ് റോഡ് നിർമ്മാണത്തിന് വനഭൂമി വിട്ടു കൊടുക്കാൻ കേന്ദ്ര വനം വന്യജീവി വകുപ്പ് അനുമതി നൽകി മൈലാടിപ്പുഴക്ക് കുറുകെ പാലം നിർമ്മിക്കാൻ പാലക്കാട് വനം ഡിവി ഷനിൽ ഉൾപ്പെട്ട അരയേക്കർ സ്ഥലമാണ് വിട്ടു നൽകുന്നത് അഖിലേന്ത്യാ കരകൌശല കൈത്തറി പ്രദർശന വിപണന മേള കൊച്ചിയിൽ മന്ത്രി വി

സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു

പാലക്കാട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ ഫീൽഡ് ഔട്ട് റീച്ച് ബ്യൂറോ ഇന്ന് ബേട്ടി ബചാവോ ബേട്ടി പഠാവോ സംഗീത നാടക ബോധവൽക്ക രണ പരിപാടി സംഘടിപ്പിക്കും തത്തമംഗലത്ത് മന്ത്രി കെ കൃ ഷ്ണൻകുട്ടി ബോധവൽക്കരണം ഉദ്ഘാടനം ചെയ്യും

എടവണ്ണ വനം റെയിഞ്ചിലെ കോഴിപ്പാറ പ്രദേശ ത്താണ് ഇന്നലെ വൈകീട്ടോടെ കാട്ടുതീ കണ്ടെത്തിയത് വനംവകു പ്പിനോ ഫയർഫോഴ്സിനോ എത്തിച്ചേരാനാകാത്ത മേഖലയായതി നാൽ തീയണക്കാൻ ആയിട്ടില്ല

ൾ സാംസ്കാരിക സാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആര്യാടൻ ഷൌക്കത്ത് നയിക്കുന്ന സാംസ്ക്കാരിക യാത്ര ഇന്ന് കോഴിക്കോട് ജില്ലയിൽ പര്യടനം നടത്തും

ബിഎസ്എൻഎല്ലിന്റെ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് നടത്തിയ രണ്ട് പേരെ കണ്ണൂരിൽ പോലീസ് അറസ്റ്റ് ചെയ്തു മയ്യിൽ സ്വദേശി മൻസൂർ മലപ്പുറം തവന്നൂരിലെ അബ്ദുൽ അസീസ് എന്നിവരാണ് അറസ്റ്റിലായത്

വയനാട് കർണാടക അതിർത്തിയിൽ നരഭോജി എന്ന് സംശയി ക്കുന്ന കടുവയെ വനം വകുപ്പ് മയക്കുവെടി വെച്ച് പിടികൂടി കഴിഞ്ഞ ഒന്നരമാസത്തിനിടെ മൂന്ന് പേരെ ഈ മേഖലയിൽ കടുവ കൊലപ്പെ ടുത്തിയിരുന്നു കടുവയെ മൈസൂർ മൃഗശാലയിലേക്ക് മാറ്റി പത്തനംതിട്ട ജില്ലയിലെ അടൂരിൽ നിന്ന് കാണാതായ രണ്ട് വിദ്യാർഥികളെ കോയമ്പത്തൂരിനടുത്ത് റെയിൽവേ പാളത്തിൽ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി

നായർ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വയനാട് സുൽത്താൻ ബത്തേരിയിൽ പ്രായപൂർത്തിയാവാത്ത ആദിവാസി പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന പത്രവാർത്തയെ അടിസ്ഥാ നമാക്കി പട്ടിക ജാതി പട്ടിക ഗോത്ര വർഗ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു ജില്ലാ പൊലീസ് മേധാവി പട്ടിക ജാതി വികസന ഓഫീ സർ ട്രൈബൽ ഡെവലപ്മെന്റ് ഓഫീസർ എന്നിവരോട് അന്വേഷണ റിപ്പോർട്ട് അടിയന്തിരമായി ലഭ്യമാക്കാൻ കമ്മീഷൻ നിർദേശിച്ചു

മികച്ച കൃഷി വിജ്ഞാന കേന്ദ്രമായി മലപ്പുറം കെ

കെ യെ തെര ഞ്ഞെടുത്തു